ലോകബാങ്ക് സഹായത്തോടെ നടത്തുന്ന സ്റ്റാർസ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി

ന് കേരളത്തിൽ തിരുവനന്തപ്പൂര്യം അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യൂ പ്രവർത്തനം ഇന്നാരംഭിക്കും

ആന്ധ്രാപ്രദേശിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കേന്ദ്രസർക്കാർ

ഇലവൻ പഞ്ചാബിനെ നേരിടും

കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ പഠനന്റിലവാരം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ്ട് പ്പിട്ടുതി

ഏതീർ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദയവും നാഴികക്കല്ലുമാകും ൃപ്ദ്ധതീയെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു

സംഘടനയുമായി രാജൃത്തിനുള്ള ദീർഘകാല ബന്ധത്തിന്റെ സ്മരണാർത്ഥമാണ് നാണയം പ്രകാശനം ചെയ്യുന്നത്

രാജ്യത്തെ അംഗൻവാടികൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ജൈവ ഹോർട്ടികൾച്ചർ മിഷനുകൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്

നിലവിലെ ആഗോള സാമ്പത്തിക സ്ഥിതിയും കോവിഡിനോടുള്ള പ്രതികരണവും യോഗം ചർച്ച ചെയ്തു

വിദ്യാഭ്യാസ മേഖലയുടെ നാഴികക്കല്ലാണ് സ്റ്റാർസ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു

ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷൃങ്ങളുമായി പൊരുത്തപ്പെടുന്ന പദ്ധതി ഗുണനിലവാര അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും

വിശദാംശങ്ങളുമായി വിജേഷ്

ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്രസർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു

മൂന്നു ദിവസമായി തുടരുന്ന മഴയിൽ ഹൈദരാബാദടക്കം വെള്ളത്തിലായി വൈദ്യുതിബന്ധം താറുമാറായി റോഡുകൾ തകർന്നു

സോജിലാ ചുരത്തിന് താഴെയായി നിർമ്മിക്കുന്ന തുരങ്ക പാത ശ്രീനഗർ ലേ എന്നിവിടങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്

കുടുംബത്തിനും സാക്ഷികൾക്കും മതിയായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു

പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കോവിഡ് രോഗികളുടെ എണ്ണം വർധിച്ച സാഹചര്യത്തിൽ രോഗ തീവ്രതയനുസരിച്ച് മികച്ച ചികിത്സ ഉറപ്പു വരുത്തുന്നതിനാണ് ഡിസ്ചാർജ് മാർഗ്ഗരേഖ പുതുക്കിയത്

രോഗലക്ഷണ മില്ലാത്ത കോവിഡ് രോഗികളെ പോസിറ്റീവായി പത്താമത്തെ ദിവസം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം